മുൻ രാഷ്ട്രപതി എ

ജെ അബ്ദുൽ കലാമിന്റെ ജന്മ ദിനമായ ഇന്ന് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നു

അഞ്ച് ലക്ഷം രൂപയാണ് ഓരോ കുടുംബത്തിനും ചികിത്സാ സഹായം ലഭിക്കുക രോഗശാന്തി എന്നതിനപ്പുറം ഇന്ത്യക്കാരുടെ ശാക്തീക രണം എന്നതാണ് ആയുഷ്മാൻ ഭാരതിന്റെ യഥാർത്ഥ ലക്ഷ്യ മെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇന്ന് ലോക വിദ്യാർത്ഥി ദിനം മുൻ രാഷ്ട്രപതിയും ശാസ്ത്ര ജ്ഞനുമായ ഡോ

ജെ അബ്ദുൽകലാമിന്റെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത്

മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽമാനുമായ ഡോ

ജെ അബ്ദുൽ കലാമിന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരം അർപ്പിച്ചു

അദ്ദേ ഹത്തിന്റെ അനുകരണീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും പ്രചോ ദനമാണെന്നും അദ്ദേഹത്തെ രാജ്യം അഭിവാദ്യം ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോക വിദ്യാർത്ഥി ദിനത്തിൽ സോഷ്യൽ സർവീസ് സ്കീം ലോഗോ കാസർകോട്ട് മന്ത്രി ഇ പി ജയരാജൻ പ്രകാശനം ചെയ്തു ഒരു രാഷ്ട്രത്തിന്റെ സാമൂഹിക മാറ്റങ്ങളിലും സാമ്പ ത്തിക വളർച്ചയിലും സാങ്കേതിക കണ്ടുപിടിത്തങ്ങളിലും വിദ്യാർത്ഥികളും യുവാക്കളും വഹിക്കുന്ന പങ്ക് നിർണായകമാ ണെന്ന് മന്ത്രി പറഞ്ഞു സാമൂഹിക സേവനം എന്ന ആശയം വിദ്യാർത്ഥികളിലേക്ക് പകർന്ന് നൽകി രാഷ്ട്രപുരോഗതിക്കായി സോഷ്യൽ എഞ്ചിനീ യർമാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നവംബർ ഒന്നിന് സംസ്ഥാനത്ത് സോഷ്യൽ സർവീസ് സ്കീം പ്രവർത്തനം ആരംഭിക്കുന്നത് കോഴിക്കോട് കൂടത്തായി കൊലപാതകക്കേസിൽ പരാതിക്കാരനായ റോജോ തോമസിൽ നിന്ന് വടകര റൂറൽ എസ് പി ഓഫീസിൽ അന്വേഷണ സംഘം മൊഴിയെടുപ്പ് ആരംഭിച്ചു മൊഴി നൽകിയതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതേസമയം പൊന്നാമറ്റം ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് ഇന്നും റവന്യൂവകുപ്പ് തെളിവെടുപ്പ് തുടരുകയാണ് ജമ്മുകശ്മീരിൽ പട്രോളിങ്ങിനിടെ കുഴിബോംബ് സ്ഫോടനത്തിൽ മലയാളി ജവാന് വീരമൃത്യു കൊല്പം അഞ്ചൽ സ്വദേശി ഇടയം ആലുംമൂട്ടിൽ കിഴക്കതിൽ വീട്ടിൽ അഭിജി ത്താണ് വീരമൃത്യു വരിച്ചത് ഇന്നലെ പുലർച്ചെ ബാരാമുള്ളയിൽ ഉണ്ടായ സ്ഫോടന ത്തിൽ അഭിജിത്ത് മരിച്ചതായാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം സൈനിക ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം നിയമനടപടികൾ പൂർത്തിയായ ശേഷം നാട്ടിലെത്തിക്കും മൂന്നുവർഷം മുമ്പാണ് അഭിജിത്ത് കരസേനയിൽ ചേർന്നത് സംസ്ഥാനത്ത് കെ

എൽ കുടുംബങ്ങളിലും ഗവൺമെന്റ് ഓഫീ സുകളിലും ആശുപത്രികളിലും സ്കൂളുകളിലും ഗവൺമെന്റ് വക ഇന്റർനെറ്റ് കണക്ഷൻ എത്തിക്കുന്നതാണ് പദ്ധതി കുറഞ്ഞ നിര ക്കിൽ അതിവേഗ ഇന്റർനെറ്റ് കേബിൾ ടി വി തുടങ്ങിയ സർവീ സുകളാണ് കെ ഫോൺ കൊണ്ട് ലക്ഷ്യമിടുന്നത്

ടി ഐയിൽ നിന്ന് ബാക്കി തുക കണ്ടെത്തും വൈദ്യുതി ബോർഡിന്റെ ഹൈടെൻഷൻ പ്രസാരണ ലൈനു കളിലൂടെയായിരിക്കും ഇന്റർനെറ്റ് കണക്ഷൻ എത്തിക്കുന്നത്

വീടുകളിൽ ഫോണും ഇന്റനെറ്റും കേബിൾ ടി വി യും നൽകാൻ പ്രയോജനപ്പെടും എന്ന താണ് പദ്ധതിയുടെ നേട്ടം

പിഎൽ കുടുംബങ്ങൾക്ക് സൌജന്യമായിട്ടാണ് കണക്ഷൻ നൽകുക മരടിൽ സുപ്രീംകോടതി ഉത്തരവ് അനുസരിച്ച് പൊളിക്കുന്ന ഫ്ളാറ്റുകളിലൊന്നിന്റെ നിർമ്മാതാവ് എറണാകുളം ജില്ലാ കോട തിയിൽ മുൻകൂർ ജാമ്യഹർജി നൽകി ചോദ്യം ചെയ്യലിന് ഹാജ രാകാനാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയ സാഹച ര്യത്തിലാണ് ആൽഫാ വെഞ്ചേഴ്സ് ഉടമ പോൾരാജ് കോടതിയെ സമീപിച്ചത് കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാതെ സ്വജനപക്ഷപാതം കാണിക്കുകയും ഖജനാവ് ധൂർത്തടിക്കുകയും ചെയ്യുന്ന എൽ ഡി എഫ് ഗവൺമെന്റിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതായി കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ ധിക്കാരനടപടികൾക്കും ഭരണത്തിനും ജനങ്ങൾ ഉപതിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം ചേർത്തലയിൽ പറഞ്ഞു അരൂർ മണ്ഡലത്തിൽ മിക്ക മന്ത്രിമാരും സി

എം നേതാക്കളും ക്യാമ്പ് ചെയ്ത് വോട്ട് കച്ചവടത്തിന് ശ്രമിക്കുകയാണ് ചട്ടം ലംഘിച്ച് ഉദ്യോഗസ്ഥന്മാരെ ഇറക്കി വീടുകളിൽ ചെന്ന് വാഗ്ദാനം നൽകി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു പൊതുവാഹനങ്ങളിൽ ഡാഷ്ബോർഡ് കാമറകൾ സ്ഥാപി ക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നതായി ഹൈക്കോടതി അഭി പ്രായപ്പെട്ടു അപകട കാരണവും വാഹനം ഓടിക്കുന്നതാരെന്നും ഉൾപ്പെടെ വിവരങ്ങൾ ഡാഷ്കാമിലെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്ത മാകും പല വിദേശ രാജ്യങ്ങളിലും പൊതുവാഹനങ്ങളിൽ ഇത്തരം കാമറകൾ നിർബന്ധമാണ് ഇക്കാര്യത്തിൽ ഗവൺമെന്റി നോട് സത്യവാങ്മൂലം നൽകാനും കോടതി നിർദേശിച്ചു പേരാ മ്പ്രയിൽ ബസിടിച്ച് സ്ത്രീ മരിച്ച കേസിൽ ഡ്രൈവർ നൽകിയ ജാമ്യാപേക്ഷയുടെ പരിഗണനാ വേളയിലാണ് കോടതിയുടെ നിർദേശം സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളെ ആധാറുമായി ബന്ധിപ്പി ക്കാൻ കേന്ദ്രത്തിന് നിർദേശം നൽകണമെന്ന പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതി നിരസിച്ചു വ്യാജ വാർത്തകളും പണം നൽകി വരുത്തുന്ന വാർത്തകളും ഒഴിവാക്കാൻ ഈ നടപടി വേണ മെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം എന്നാൽ വിഷയം ഹൈക്കോടതിയിൽ ഉന്നയിക്കാൻ ഹർജിക്കാരന് കോടതി അനു മതി നൽകി ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണരേഖയ്ക്കടുത്ത് വെടിനിർത്തൽ ലംഘിച്ച് പാക് സൈന്യം ഷെല്ലാക്രമണം നടത്തി കൊസ്ബ കിർണി മേഖലകളിലായിരുന്നു രാവിലെ ആക്രമണ മെന്ന് സൈനിക വക്താവ് ജമ്മുവിൽ അറിയിച്ചു ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടി നൽകിയതായി അദ്ദേഹം അറിയിച്ചു

റോഡരികിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നുണ്ട് ടാങ്കർലോറികൾ എയ്ഡ്പോസ്റ്റിന്റെ മുന്നിൽ നിർത്തി മുന്നറിയിപ്പ് നൽകിയ ശേഷം മാത്രമേ മുന്നോട്ടു പോകാൻ അനുവദിക്കൂ വട്ടപ്പാറയിലെ അപകടങ്ങൾ തടയാൻ ജില്ലാകലക്ടർ ജാഫർ മാലിക്കിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തത് കണ്ണൂർ രാജ്യാന്തര വിമാനതാവളത്തിന്റെ രണ്ടാം റൺവെയിൽ ഇൻസ്ട്രുമെന്റ് ലാന്റിംഗ് സംവിധാനം സ്ഥാപിക്കുന്നതിന് പരിശോധന തുടങ്ങി പ്രതികൂല കാലാവസ്ഥയിലും വിമാനം സുരക്ഷിതമായി ഇറങ്ങുന്നതിനുവേ ണ്ടിയാണ് ഈ സംവിധാനം എയർപോർട്ട് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് സൌദി അറേബ്യൻ ബജറ്റ് വിമാനക്കമ്പനിയായ ഫ്ളൈനാസ് കരിപ്പൂരിലേക്ക് നാളെ സർവീസ് പുനരാരംഭിക്കും

ഈ സെക്ടറിൽ കോഴിക്കോട് നിന്ന് സർവീസ് നടത്തുന്ന മൂന്നാമത്തെ വിമാനക്കമ്പനിയാണ് ഫ് ളൈനാസ് നിലവിൽ സൌദി എയർലൈൻസും എയർഇന്ത്യ എക് സ്പ്രസുമാണ് സർവീസ് നടത്തുന്നത് സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പാഠ്യപദ്ധതികളിൽ മാറ്റം വരുത്തണമെന്ന് മന്ത്രി കെ

ഇതിന് നൈപുണ്യ വികസന വിദ്യാ ഭ്യാസ പദ്ധതി അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു പാല ക്കാട് വണ്ടിത്താവളം കെ

എം ഹൈസ്കൂളിൽ കൊമേഴ്സ് ലാബ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോഴിക്കോട് മൂഴിക്കൽ പൂക്കാട്ടുകുഴി കടവിൽ സുഹൃത്തുക്കൾക്കൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങി കാണാതായ രണ്ടാമത്തെ വിദ്യാർത്ഥിയുടെയും മൃതദേഹം കണ്ടെത്തി വെള്ളിമാട്കുന്ന് ജെ

റ്റി കോളജിലെ ഒന്നാം വർഷ വിദ്യാർഥി വയനാട് സ്വദേശി അമറിന്റെ മൃതദേഹമാണ് രാവിലെ പതിനൊന്ന് മണിയോടെ കണ്ടെത്തിയത്

സുഹൃത്തു ക്കളുടെ കൂടെ കുളിക്കാനിറങ്ങിയതായിരുന്നു ഇരുവരും വെള്ളിമാട്കുന്ന് ഫയർഫോഴ്സാണ് തെരച്ചിൽ നടത്തിയത് തൃശൂർ കയ്പമംഗലത്ത് നിന്ന് കാണാതായ പെട്രോൾ പമ്പ് ഉടമയെ മരിച്ച നിലയിൽ കണ്ടെത്തി കയ്പമംഗലം സ്വദേശി മനോ ഹരന്റെ മൃതദേഹമാണ് ഗുരുവായൂരിലെ മമ്മിയൂരിൽ റോഡരികി ൽ കണ്ടെത്തിയത് കൈകൾ രണ്ടും പിന്നിലേക്ക് കെട്ടിയിട്ട നില യിലായിരുന്നു മൃതദേഹം കഴിഞ്ഞ ദിവസം അർധരാത്രിയോടെ പമ്പിൽ നിന്ന് കാറിൽ വീട്ടിലേക്ക് പോയ മനോഹരനെ കാണാ താവുകയായിരുന്നു കാറും അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണും കണ്ടെത്താനായില്ല സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പൊലീസ് അറിയിച്ചു തൃശൂർ പുതുക്കാട് യൂബർ ടാക്സി ഡ്രൈവറെ ആക്രമിച്ച് രണ്ടംഗസംഘം കാർ തട്ടിയെടുത്തു

തട്ടിയെടുത്ത കാർ പിന്നീട് ഉപേക്ഷിച്ച നിലയിൽ അങ്കമാലിയിൽ കണ്ടെത്തി

ഇന്നലെയാണ് വിദ്യാർത്ഥിയുടെ ശരീരാവശിഷ്ടങ്ങൾ പുറത്തെടുത്തത് ക്യാൻസർ ബോധവൽക്കരണ പ്രക്ഷേപണ പരമ്പരയുടെ ഭാഗമായി ആകാശവാണി കണ്ണൂർ നിലയവും മലബാർ കാൻസർ കെയർ സൊസൈറ്റിയും ചേർന്ന് കണ്ണൂർ ജില്ലയിലെ കോളേജുകളിൽ നടത്തുന്ന പ്രശ്നോത്തരിക്ക് തുടക്കമായി രാവിലെ കണ്ണൂർ എസ്

വൈറ്റ് കെയിൻ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ വിവിധ പരിപാടികൾക്ക് തുടക്കമായി കേരള ഫെഡറേഷൻ ഓഫ് ദ ബളൈൻറും ലയൺസ് ക്ലബ്ബും ചേർന്ന് നടത്തുന്ന വൈറ്റ് കെയിൻ റാലി കലക്ട്രേറ്റ് പരിസരത്ത് എ

ജവഹർ ഓഡിറ്റോറിയത്തിൽ സെമിനാറും പൊതു സമ്മേളനവും നടത്തുന്നുണ്ട് കടലിൽ അനധികൃത കണവ പിടുത്തം നടത്തിയവരെ കൊല്ലത്ത് ഫിഷറീസ് വകുപ്പ് പിടികൂടി പിഴ ഈടാക്കി